കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് പ്രത്യേക പ്രതിരോധ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു

വിളിച്ചു ചേർക്കരുത്തെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രാലയത്തിന്റെ നിർദേശം

മാനദണ്ഡം രൂപീകരിക്കാൻ മന്ത്രിസഭാ തീരുമാനം

സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും

പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോ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

വിദേശത്ത് നിന്നെത്തുന്ന യാത്രക്കാർ അവർ സഞ്ചരിച്ച് ്സ്ഥലങ്ങളെ കുറിച്ച് രേഖാമൂലം വിശദീകരണം നൽകണം കൃഅ്തീർത്തി ചെക്ക്പോസ്റ്റുകളിലും പരിശോധന കർക്കശമാക്കണമെന്ന് ക്ട്രേന്ദ് ആഭ്യന്തര വകുപ്പ് എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേ്ശം നൽകി

ജനങ്ങൾ കൂട്ടായ്മകളിൽ നിന്ന് തൽക്കാലത്തേയ്ക്ക് വിട്ടുനിൽക്കണമെന്ന് ഡൽഹി ഗവൺമെന്റ് ആവശ്യപ്പെട്ടു കൊറോണ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം സ് കൂളുകൾക്ക് ജാഗ്രതാനിർദ്ദേശവു നൽകിയിട്ടുണ്ട് സ്കൂൾ അസംബ്ലിയിൽ ഉൾപ്പെടെ കുട്ടികളെ കൂട്ടത്തോടെ വിളിച്ചു ചേർക്കുന്നത് വിലക്കി

ഐ

കോട്ടയം ജില്ലയിൽ പത്ത് പേരെ കൂടി നിരീക്ഷണത്തിൽ കഴിയാൻ നിർദേശിച്ചു

തൃശൂർ ജില്ലയിൽ കൺട്രോൾ റൂം തുറന്നു

ബി എസ്

യൂറോപ്യൻ യൂണിയൻ അമേരിക്ക ജപ്പാൻ എന്നീ രാജ്യങ്ങളെയാകും ഇത് ഏറ്റവുമധികം ബാധിക്കുകയെന്നും വ്യാപാര നിക്ഷേപ വികസനം സംബന്ധിച്ച യു എൻ സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു

രാജ്യത്തെ പ്രമുഖ എണ്ണ കമ്പനിയും ടെലികോം കമ്പനിയുമാണ് നികുതി വെട്ടിപ്പ് നടത്തിയത് ഇവരുടെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ കൃത്യമായി നികുതി ഒടുക്കുന്നില്ലെന്ന് കണ്ടെത്തി

ഇവർക്ക് എതിരെയുള്ള നടപടികളും പുരോഗമിക്കുന്നു

പോലീസ് വകുപ്പിന്റെ പർച്ചേസുകൾക്കും സ്പ്രൂനകരാറുകൾക്കും പ്രത്യേകം മാനദണ്ഡങ്ങളും ചട്ടങ്ങളും രൂപീക്കിരിക്കുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജുഡീഷ്യൽ ക്യ്മ്മ്മീഷ്നെ നിയമിക്കാനും തീരുമാനമായി ്കോട്ടയം കുമരകം പ്പീല്ലേജിലെ മെത്രാൻ കായൽ പാടശേഖരത്തിൽ ടൂറിസം പദ്ധതി നട്ടപ്പാക്കാൻ മുൻ സർക്കാർ നൽകിയ ഉത്തരവ് റദ്ദാക്കും

ഇതിലൂടെ രാജ്യത്തെ വനിതകൾക്ക് മികച്ച ജീവിതം നയിക്കുന്നതിനും സംരംഭകയാകുകയെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനും കഴിഞ്ഞു

രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ പങ്കാളികളാക്കുന്നതിന് സഹായിക്കുന്നതിനായി അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളായ പട്ടിക ജാതി പട്ടികവർഗു വനിതാ സംരംഭകരിലേക്ക് സ്ഥാപനവായ്പ ഘടനയെ എത്തിക്കുന്നതിന് ഉത്തേജനം നൽകുന്നതിന് ഈ പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട്

പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്ന പി

ശതമാനം പേരും വനിതകളാണ്

ഐ ആറുകൾ രജിസ്റ്റർ ചെയ്തു

ഭീകരൻ അജ്മൽ കസബിന്റെ ജീവനോടെ പിടികൂടുന്നതിൽ മുഖ്യപങ്ക് വഹിച്ചവരാണ് ഇവർ ഉദ്യോഗസ്ഥർക്ക് വൺ റാങ്ക് വൺ പ്രൊമോഷൻ നൽകാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖ് ഇന്നലെ മുംബൈയിൽ മാധ്യമപ്രവർത്തകരെ അറിയിച്ചു

കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ജംബുൽഖേദയിൽ നടന്ന് സ്ഫോടനത്തിന്റെ മുഖ്യസൂത്രധാരനായിരുന്നു ഇയാൾ

ദേശീയ സെമിനാറിൽ സ്കൂസ്കൃത നാടകങ്ങളും സുകുമാരകലകളും എന്ന വിഷയത്തിൽ ആ ൽ ഏറെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും

എസ്റ്റേറ്റ് ഏറ്റെടുത്തു കൊണ്ടുള്ള ജില്ലാ കളക്ടറ്റുള്ട ഉത്തരവിനെതിരെ അവകാശികളെന്ന പേരിൽ മൈക്കിൾ ഫ്ളോയീഡ് ഈശ്വറും മെറ്റിൽഡ ടില്ലി ഗിഫോർഡുമാണ് അപ്പീൽ നൽകിയത്

ട്വന്റി ടാന്റിയിൽ ഇതുവരെ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിട്ടില്ലാത്ത ഇന്ത്യ ലോകകപ്പ് ഫൈനൽ കളിച്ചിട്ടുമില്ല